ഐ സി സി ടെസ്റ്റ് റാങ്കിങ്ങിൽ ആദ്യ പത്തിലെത്തുന്ന പ്രഥമ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറെന്ന ഖ്യാതി ഋഷഭ് പന്തിന്

സംസ്ഥാനത്തെ രോഗസ്ഥിതി പരിഗണിച്ച് ഒരാഴ്ചയെങ്കിലും സമ്പൂർണ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കണമെന്ന് ഐ

അടക്കമുള്ള ആരോഗ്യ സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു

കൂടുതൽ വിവരങ്ങളുമായി സുവർണ

റെക്കോർഡ് വേഗത്തിലാണ് രാജൃത്ത് കോവിഡ് വാക്സിന്റെ വിതരണം പുരോഗമിക്കുന്നത്

ഇതോടെ രാജ്യത്തെ ആകെ കോപ്പിഡ് ബാധിതരുടെ എണ്ണം രണ്ടു കോടി പത്തുലക്ഷത്തിലധികമായി്

കോവിഡ് മഹാമാരി പോലുള്ള അസാധാരണ സാഹചരൃങ്ങളിൽ അസാധാരണ നടപടികൾ ആവശ്യമായി വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റിന്റെ വ്യാവസായിക ഉപദേഷ്ടാവ് കാതറിൻ തായ് വൃക്തമാക്കി

രാഷ്ട്രീയ ലോക് ദൾ നേതാവായ അദ്ദേഹം ഏഴ് തവണ ഉത്തർപ്രദേശിലെ ബാഗ്പത് മണ്ഡലത്തിൽ നിന്നും പാർലമെന്റ് അംഗമായിട്ടുണ്ട്

ജനപ്രതിനിധി എന്ന നിലയിലും കേന്ദ്ര മന്ത്രിയെന്ന നിലയിലും അജിത്ത് സിംഗ് രാജ്യർത്ത് രാഷ്ട്രീയരംഗത്ത് സവിശേഷമായ കയ്യൊപ്പ് ചാർത്തിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കൃഷിയുടെയും കർഷകരുടെയും പുരോഗതിക്കായി അദ്ദേഹം നൽകിയ സംഭാവന എപ്പോഴും ഓർമ്മിക്കപ്പെടുമെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു കർഷകർക്കായി സമർപ്പിച്ച ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റേതെന്നും കേന്ദ്രത്തിൽ നിരവധി വകുപ്പുകളിൽ അദ്ദേഹം കാര്യക്ഷമതയോടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചിരുന്നുവെന്നും പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു

സംസ്ക്കാര ചടങ്ങുകൾ ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്നിന് തിരുവല്ല മാർത്തോമ്മാ സഭ ആസ്ഥാനത്തെ പള്ളിയിൽ നടക്കും

ഗവർണർ ആരിഫ് മുഹമ്മദ് ഖ്യാനും ഉച്ചയ്ക്ക് ഒന്നേകാലോടെ അന്ത്യോപചാരം അർപ്പിക്കാനെത്തും

ബ്രിട്ടൻ അയർലന്റ് റൊമാനിയ റഷ്യ യു

ഷോപ്പിയാൻ ജില്ലയിലെ കനിഗാമിൽ ഇന്നു പുലർച്ചെയാണ് സംഭവം

രഹസ്യവിവരം ലഭിച്ചതിനെത്തുടർന്ന് നടത്തിയ തെരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത്

കമ്പനിയുടെ സ്പ്നപദ്ധതിയായ പുനരുപയോഗ റോക്കറ്റ് വിക്ഷേപണ വാഹനങ്ങളുടെ നിർമ്മാണത്തിലേക്കുള്ള വലിയ ചുവടുവയ്പായിട്ടാണ് ഈ നേട്ടത്തെ ശാസ്ത്രലോകം നോക്കിക്കാണുന്നത്

റോക്കറ്റിന്റെ ഗതി നിരീക്ഷിക്കുന്നുണ്ടെന്നും എന്നാൽ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ തിരികെ പ്രവേശിച്ച ശേഷം മാത്രമേ റോക്കറ്റ് പൃതിക്കുന്ന സ്ഥലം കൃത്യമായി കണക്കാക്കാൻ സാധിക്കുക്പ്പെന്നും യു എസ് സൈന്യം അറിയിച്ചു

ബാറ്റ്സ്മാൻമാരുടെ ആദ്യ പത്തിൽ ഇടം നേടുന്ന പ്രഥമ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറെന്ന ഖ്യാതിയാണ് പന്ത് സ്വന്തമാക്കിയത് പുതിയ പട്ടികയിൽ ആറാം സ്ഥാനത്താണ് പന്ത്

അഞ്ചാം സ്ഥാനത്തുള്ള വിരാട് കോഹ്ലിയാണ് പട്ടികയിലുള്ള മറ്റൊരു ഇന്ത്യൻ താരം